കേരളത്തിൽ ഏഴ് ബൂത്തുകളിൽ റീ പോളിംഗ് വോട്ടെണ്ണാൻ ഇനി അഞ്ച് ദിവ്വ്സും

വിപുലമായ ഒരുക്കങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ അടു്ത്ത സാമ്പത്തിക ന് വർഷത്തേയ്ക്കുള്ള് പ്പദ്ധതികൾ പരിഷ്ക്കരിക്കുമ്പോൾ മാലിന്യ സംസ്ക്കരണ് പദ്ധതികൾക്ക് മുൻഗണന നൽകണമെന്ന് ശ്രുചിത്വമിഷൻ

സ്ഥിരീകരിച്ചിട്ട് ഇന്ന് ഒരു വർഷം ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം

അറിവിന്റെ അക്ഷയ ഖനികളായ മ്യൂസിയങ്ങളെ വരും തലമുറയ്ക്കായി സംരക്ഷിക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി

കള്ളവോട്ട് നടന്നതായി സ്ഥിരീകരിച്ച ഏഴ് കേരളത്തിൽ ബൂത്തുകളിൽ നാളെ റീ പോളിംഗ് നടക്കും ഏഴിടത്തും പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു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

വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നത് ഉൾപ്പെടെ ഇത്തവണ വോട്ടെണ്ണലിന് പുതുമകൾ ഏറെയാണ് പ്രത്യേകഠ തയ്യാറാക്കിയ കൌണ്ടറിലായിരിക്കും വിവി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നത് ഓരോ നിയോജകമണ്ഡലങ്ങളിലും അഞ്ച് വീതം പോളിംഗ് ബൂത്തുകളിലെ വിവി പാറ്റ് മെഷീനിലെ സ്ലിപ്പുകൾ വോട്ടെണ്ണൽ ദിവസം നറുക്കെടുപ്പിലൂടെ ഈ എണ്ണും

ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ട് അതത് കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കും തെരഞ്ഞെടുപ്പ് ഫലം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ സജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

വിദൂര സ്ഥലങ്ങളിൽ ഉള്ളവർക്ക്സ് പ് ഈ നടപടിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മിഷൻ വോട്ട് ് ്നീഷ്ഷ്ധിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

ശുചിത്വമിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോ

ചെയർമാൻ പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിക്കണമെന്നാവശൃപ്പെട്ട് ചെയർമാന്റെ ചുമതല വഹിക്കുന്ന പി ജെ ജോസഫിന് കത്ത്പുനൽകാൻ ജോസ് കെ മാണി വിഭാഗം സംസ്ഥാന കമ്മിറ്റി ്യൂക്കുംങ്ങളുടെ ഒപ്പു ശേഖരിച്ചു തുടങ്ങി

രോഗം ആദ്യമായി സ്ഥിരീകരിച്ച പേരാമ്പ്ര പന്തിരിക്കരയിലെ സാലിഹ് മരിച്ചത് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ്

രോഗത്തിൽ നിന്ന് മുക്തി നേടിയ നഴ്സിംഗ് വിദ്യാർത്ഥിന്റി അ്ജന്യ ഇപ്പോൾ ബിരുദ പഠനത്തിന്റെ അവസാന വർഷ്ടം പൂർത്തിയാക്കുകയാണ് നിപയെന്ന മഹാമാരിയെ ഒറ്റക്കെട്ടായി നിന്ന് സധൈര്യം നേരിടാൻ കേരളത്തിനായി മലബാറ്റിൽ ആദ്യത്തെ വൈറോളജി ലാബ് സ്ഥാപിക്കാനുള്ള പരിശ്രിമും സഫലതയിലേക്ക് നീങ്ങുകയാണ്

ഒരാഴ്ചക്കിടെ മൂന്നു പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും മെഡിക്കൽ ഓഫീസർ ഡോ വിനോദ് പറഞ്ഞു

എസ് ടി കമ്മീഷണർ ടിങ്കു ബിസ്വാൾ അറിയിച്ചു ചില വ്യാപാരികൾ ഉപഭോക്താക്കളിൽ നിന്ന് ഇത്തരത്തിൽ നികുതി പിരിക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട്

പ്രധാന വ്യാപാര സ്ഥാപനങ്ങളുടേയും ശാഖകളുടേയും ബോർഡിലും നോട്ടീസിലും കോമ്പോസിഷൻ നികുതിദായകർ എന്ന് രേഖപ്പെടുത്തണമെന്നും ജിഎസ്ടി കമ്മീഷണർ അറിയിച്ചു

നിലവിലുളള നോൺക്രീമിലെയർ മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് ഇത് മിശ്രവിവാഹിതരിൽ ഒരാൾ പിന്നാക്ക വിഭാഗവും മറ്റേയാൾ മുന്നോക്ക വിഭാഗവുമാണെങ്കിൽ അവരുടെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ബുദ്ധിമുട് നേരിടുന്നെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്

ഉച്ചപൂജയോടനുബന്ധിച്ചിച്ചുള്ള കലശാഭിഷേകവും കളഭാഭിഷേകവും അൽപസമയം മുമ്പു നടന്നു വൻ ഭക്തജനത്തിരക്കാണ് ഇപ്പോഴും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്

തിരുവനന്തപുരം മണക്കാട് മാർക്കറ്റിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരിബാലകൃഷ്ണൻ നേതൃത്വം നൽകി